നിയമനിർമ്മാണത്തിനായാണ്

കൃഷ്ണൻകുട്ടി ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

അന്തരിച്ച അംഗം പി ബി അബ്ദുൾ റസാഖിന് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്ന് പിരിയും

നിയമനിർമ്മാണത്തിനായി നീക്കിവെച്ച മറ്റ് ദിവസങ്ങളിൽ കാര്യോപദേശക സമിതി തീരുമാനിക്കുന്ന ബില്ലു കളാണ് നിയമസഭയുടെ പരിഗണനയ്ക്കു വരിക ശബരിമലയിലെ യുവതീപ്രവേ ശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ മന്ത്രി ഡോ കെ ടി ജലീലിന്റെ ബന്ധുനിയമനം ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പി

ശശി എം എൽ എക്കെ തിരായ ലൈംഗികാരോപണം പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങളിലെ വേഗക്കുറവ് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സമ്മേളനം പ്രക്ഷുബ്ധമാകാനിടയുണ്ട്

കൃഷ്ണൻകുട്ടി ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് അഞ്ചിന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും ജനതാദൾ എസ് ദേശീയ നേതൃ ത്വത്തിന്റെ തീരുമാനമനുസരിച്ച് മാത്യു ടി

ജെ ഡി എസ് സംസ്ഥാന പ്രസിഡന്റായ അദ്ദേഹം പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് നിയമസഭയിലെത്തിയത് ശബരിമലയിൽ നിരോധനാജ്ഞ നാലു ദിവസത്തേക്കുകൂടി നീട്ടി ഇല വുങ്കൽ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ തുടരാൻ പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

ഭക്തർക്ക് ഒറ്റയ്ക്കോ സംഘമായോ ദർശനത്തിനെത്തുന്നതിനും ശരണം വിളിക്കു ന്നതിനും നിരോധനാജ്ഞ തടസ്സമല്ലെന്ന് ഉത്തരവിൽ വൃക്തമാക്കി നിയമവിരുദ്ധ മായി ജനങ്ങൾ സംഘം ചേരുന്നതും പ്രകടനം പൊതുയോഗം വഴി തടയൽ എന്നിവ നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്

നിലയ്ക്കൽ വടശ്ശേ രിക്കര എരുമേലി എന്നിവിടങ്ങളിലെ സുരക്ഷാമേൽനോട്ട ചുമതല ഇന്റലിജൻസ് ഐ ജി അശോക് യാദവ് വഹിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു മണ്ഡല മകരവിളക്ക് കാലത്ത് സുരക്ഷാചുമതലയുള്ള പൊലീസ് ജോയിന്റ് ചീഫ് കോർഡിനേറ്ററായി തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം തുടരും ശബരിമലയിൽ നിരോധനാജ്ഞ തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പത്തനംതിട്ട ജില്ല കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ബാബു ജോർജ്ജ് പറഞ്ഞു ഭക്തരുടെ ഭയാശങ്ക മാറ്റാതെ ശബരിമലയിലേക്ക് തീർത്ഥാട കർ വരില്ലെന്നും ഇപ്പോഴും ശബരിമലയിൽ സംഘർഷ സാധ്യത ഉണ്ടെന്ന് വരുത്തി ബി ജെപിയ്ക്ക് രാഷ്ട്രീയലാഭം കൊയ്യാനുള്ള അവസരമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊടുക്കുന്നതെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു നവകേരള ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാവും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തിന്റെ പ്രളയാനന്തര സാഹചര്യവും ലൈഫ് ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാ ഭ്യാസ സംരക്ഷണയജ്ഞം മിഷനുകളുടെ പ്രവർത്തനപുരോഗതിയും രണ്ടു ദിവ സത്തെ ശില്പശാല വിശദമായി വിലയിരുത്തും

ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം വന്നി ട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ നിയമനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ച തായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

റാവത്ത് ശനി യാഴ്ച വിരമിക്കുന്ന ഒഴിവിൽ അറോറ ഞായറാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷ ണറായി ചുമതലയേൽക്കും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക

കോൺഗ്രസിനെ തകർത്ത് കേരളത്തെ പങ്കിട്ടെടുക്കാൻ സി പി ഐ എമ്മും ബി ജെ പിയും ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ജനവിശ്വാസം കൂടുത്ലായി നേടേണ്ടത് കോൺഗ്ര സിന് ഇന്ന് ആവശ്യമാണെന്നും സന്ദേശങ്ങളും നിലപാടുകളും പ്രചരിപ്പിക്കാൻ പ്രവർത്തകർ ജനങ്ങളിലേക്കിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച എം

ഷാനവാസ് അനുസ്മരണ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആന്റണി ഒരേ സമയം അടിയുറച്ച കോൺഗ്ര സുകാരനും മതവിശ്വാസിയുമായിരുന്ന ഷാനവാസ് പാർട്ടി നിലപാട് വിവിധ വേദി കളിൽ വ്യക്തമായി അവതരിപ്പിച്ചിരുന്നുവെന്ന് ആന്റണി പറഞ്ഞു

ശശിക്കെതിരായ സി പി ഐ എമ്മിന്റെ സസ്പെൻഷൻ നടപടി പ്രഹസനമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി

സ്വന്തം പാർട്ടിയുടെ യുവ ജനസംഘടനയിലെ വനിതാ നേതാവിൽ നിന്നും ആവർത്തിച്ച് പരാതി ഉയർന്നിട്ടും നടപടി സ്വീകരിക്കാൻ പൊലീസിനെ അനുവദിക്കാതെ ലൈംഗികകുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് പിണറായിയുടേതെന്ന് ഒരിക്കൽകൂടി തെളിയി ച്ചിരിക്കുകയാണെന്ന് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു

സസ്പെന്റ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജി വെച്ച് നിയമ നടപടി നേരിടണമെന്ന് യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മറ്റി ആവശ്യപെട്ടു

സുരേന്ദ്രനെ ഇന്ന് തിരു വനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും പ്രമേഹം ഉൾപ്പെടെ അസു ഖങ്ങളുള്ളതിനാൽ ആശുപത്രി സൌകര്യമുള്ള ജയിലിലേക്ക് മാറ്റണമെന്ന സുരേ ന്ദ്രന്റെ ഹർജിയിലാണ് കൊട്ടാരക്കര ജയിലിൽ നിന്ന് മാറ്റാൻ പത്തനംതിട്ട ഒന്നാം ക്സാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് ഇന്നലെ കണ്ണൂർ കോടതിയിൽ ഹാജ രാക്കി തിരുവനന്തപുരത്തേക്ക് പോകുംവഴി രാത്രിയായതിനാൽ സുരേന്ദ്രനെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് താമസിപ്പിച്ചത്

സുരേ ന്ദ്രനെ അനധികൃതമായി ജയിലിൽ പാർപ്പിച്ചതിനെതിരെ നിയമപോരാട്ടം നടത്തു മെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

സുരേന്ദ്രന്റെ കൂടെ കസ്റ്റഡിയിൽ എടുത്തവരെ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

ഷാജി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാ രായ എ

സിക്രി അശോക് ഭൂഷൺ എം

ഷാ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക

് ് മംഗലാപുരത്തെ മൂടബിദ്രിയിൽ നടക്കുന്ന അന്തർസർവ്വകലാശാല അത്ലറ്റിക് മീറ്റിൽ മൂന്നാം ദിനം കോട്ടയം എം ജി സർവ്വകലാശാലയിലെ വി

എം ജിയുടെ തന്നെ ജെറിൻ ജോസഫ് ഈയിനത്തിൽ വെള്ളി നേടി

വനിതാവിഭാഗത്തിൽ എം

ത്തിൽ ബംഗളുരു എഫ് സി ഏകപക്ഷീയമായ ഒരു ഗോളിന് ഡൽഹി ഡൈനാമോ സിനെ തോല്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ഇന്ന് പൂനെ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ഹയർ സെക്കന്ററി തലത്തിൽ മലപ്പുറം വേങ്ങര മഞ്ചേരി ഉപജില്ലകളാണ് മുന്നിൽ

പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്നും നാളെയു മായി തിരുവല്പ തിരുമൂലപുരത്ത് നടക്കും

മഹാപ്രള യത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് കുറയ്ക്കാൻ ഉദ്ഘാടന സമാപന സമ്മേള നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്

ശുചിത്വ ബോധവത്കരണ പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇന്ന് ആരംഭി ക്കും ശുചിത്വം ഉറവിട മാലിന്യ സംസ്കരണം എന്നിവയെകുറിച്ച് വിദഗ്ദ്ധർ ക്ലാസ്സെടുക്കും മാലിന്യസംസ്കരണ മാതൃകക്ളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും

പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിച്ചു സാമൂഹ്യനീതി വകുപ്പ് മുഖേന നൽകുന്ന പെൻഷൻ മൂന്നു മാസമായി മുടങ്ങിയിരുന്നു മാനസിക വെല്ലുവിളി കൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡ് മുഖ്യമ ന്ത്രിക്കും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും നിവേദനം നൽകി യതിനെ തുടർന്നാണ് പെൻഷൻ വിതരണത്തിന് ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിച്ചത്

ണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എ കെ ആന്റണി പറഞ്ഞു സാധാരണ ക്കാർക്ക് മികച്ച ചികിത്സയ്ക്കായി ഗവൺമെന്റ് ആശുപത്രികളിൽ കൂടുതൽ സൌകര്യം വേണമെന്നും അദ്ദേഹം പറഞ്ഞു

സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ട ഓഫീസർ ഡോക്ടർ വി

വായുവിലൂടെ എളുപ്പത്തിൽ പക രുന്ന രോഗമാണിതെന്നും രോഗി ഉപയോഗിച്ച വസ്തുക്കളിലൂടെ രോഗം പകരാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു

ശുചിത്വ സംസ്കാരം പഠിപ്പിക്കണമെന്ന് മുല്ലക്കര രത്നാകരൻ എം

കൊല്ലം ചടയമംഗലം നിയോജകമണ്ഡലം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന തിനോടനുബന്ധിച്ച് മേഖലയിലെ സ്കൂളുകളിലെ പ്രഥമാധ്യാപക ർക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിമാനത്താവളത്തിലെ സൌകര്യങ്ങളും സുരക്ഷാകാര്യങ്ങളും വില യിരുത്തുന്ന സംഘം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും സൌദി എയർലൈൻസിന്റെ മുംബൈ കേന്ദ്രത്തിലെ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി പരേഷ് ശിരോസ്കറുടെ നേതൃത്വത്തിലാണ് സംഘം എത്തുന്നത്

ഇരയാക്കിയ കേസിൽ ആരോപണ വിധേയനായ അധ്യാപകനെ കണ്ടെത്താൻ പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി

ശിക്കും രാവിലെ പയ്യന്നൂർ പെരുമ്പയിൽ യാത്ര ആരംഭിക്കും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും